രൂപീകരിക്കണമെന്ന് സുപ്രീം കോടതി

സ്വീകരിച്ചുവെന്ന് പ്രധാനമന്ത്രി

ക കർത്താർപൂർ ഇടനാഴിയുടെ സ്ട്രുയോജിത ചെക്ക് പോസ്റ്റ് ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു

പശ്ചിമ ബംഗാൾ തീരം ്തൊട്ടു ഒഡീഷയിലും ബംഗ്ലാദേശിലും ജാഗ്രതാ നിർദ്ദേശം

ഇന്ന് നാഗ്പൂരിൽ

പകരം പള്ളി നിർമ്മിക്കുന്നതിന് സുന്നി വഖഫ് ബോർഡിന് അനുയോജ്യമായ സ്ഥലത്ത് അഞ്ച് ഏക്കർ ഭൂമി നൽകുവാനും കോടതി നിർദ്ദേശിച്ചു ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായുള്ള അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന്റേതാണ് ഏകകണ്ഠമായ വിധി

രാജ്യൂത്തിന്റെ സമത്വത്തിന്റെയും സാഹോദരൃത്തി ന്റെയും സമാധാനത്തിന്റെയും പാരമ്പര്യമാണ് വിധിയെ സ്വാഗതം ചെയ്തുള്ള ജനങ്ങളുടെ പ്രതികരണത്തിലൂടെ വെളിവാകുന്നതെന്ന് ബിജെപി പറഞ്ഞു

രാജ്യത്തിന്റെ മതനിരപേക്ഷതയും ജനാധിപത്യ മൂല്യങ്ങളും ശക്തിപ്പെടുത്തുന്ന്താണ് അയോധ്യാ കേസിലെ സുപ്രീംകോടതി വിധിയെന്ന് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് പറഞ്ഞു ബഹുജൻ സമാജ് പാർട്ടി നേതാവ് മായാവതിയും സുപ്രീം കോടതി വിധിയെ സ്വാഗതം ചെയ്തു

തർക്കങ്ങൾ മറന്ന് രാമക്ഷേത്രം നിർമ്മിക്കുന്നതിനുള്ള കൂട്ടായ പ്രവർത്തനം ഉണ്ടാകണമെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു വിശ്വഹിന്ദു പരിഷത്തും വിധിയെ സ്വാഗതം ചെയ്തു

വിധി പഠിച്ചതിനുശേഷം പുനപരിശോധനാ ഹർജി ഫയൽ ചെയ്യുന്ന കാര്യം തീരുമാനിക്കുമെന്ന് ബോർഡിന്റെ സെക്രട്ടറി സഫർയാബ് ജിലാനി പറഞ്ഞു

അയോദ്ധ്യ വിധിയുടെ പശ്ചാത്തലത്തിൽ ഉത്തർപ്രദ്ദേശിൽ ്കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ആവശ്യമായ ്യൂൻ്കരുതൽ എടുത്തതായി സുരക്ഷാ ചുമതലയുള്ള എ ഡി ജി

അയോദ്ധ്യയിലേക്ക് കൂടുതൽ തീർത്ഥാടകർ എത്താൻ സൂർ്യ്തയുള്ളതിനാൽ നിരീക്ഷണവും ശക്തമാക്കി

ജെ

ക്ക് ക്ഷണം

ജെ

യുടെ നേതാവ് ദേവേന്ദ്ര ഫഡ്നാവിസിനെ ഗവൺമെന്റ് രൂപീകരിക്കാൻ മഹാരാഷ്ട്ര ഗവർണർ ഭഗത് സിംഗ് കോഷ്യാരി ക്ഷണിച്ചു

എന്നാൽ ഗവർണറുടെ ക്ഷണത്തെ സ്വാഭാവികമായ ഭരണഘടനാ പ്രക്രിയയായാണ് ബി ജെ

നേതാവ് സുധീർ മുങ്കൻതവാർ വിലയിരുത്തിയത് ഇന്ന് നടക്കുന്ന പാർട്ടിയുടെ കോർ കമ്മിറ്റി യോഗത്തിൽ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഗവൺമെന്റുണ്ടാക്കാൻ ബി ജെ

യെ ക്ഷണിച്ചു ഗവർണറുടെ നടപടിയെ സ്വാഗതം ചെയ്യുന്നതായി ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത് അറിയിച്ചു

കർതാർപുർ ഇടനാഴ്ചീയും ഇന്റഗ്രേറ്റഡ് ചെക്ക്പോസ്റ്റും പ്രവർത്തനമാരംഭിച്ചത് ഇർട്ടി ്സന്തോഷം ഉളവാക്കുന്നതാണെന്ന് ചടങ്ങിനെ ആഭീസ്സംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു

ഇന്ത്യയുടെ അഭിലാഷങ്ങൾ മനസ്സിലാക്കിയതിൽ പാക്ടിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻ ഖാന് ശ്രീ

മൂന്നു മത്സരങ്ങളുടെ പരമ്പരയിൽ ഇരു ടീമുകളും ഓരോ വിജയം നേടി ഒപ്പത്തിനൊപ്പം നിൽക്കുകയാണ്

കളിയുടെ തത്സ്മയു ദൃക്ഷിസാക്ഷി വിവരണം ആകാശവാണിയുടെ രാജധാനി എഫ്

ഒഡീഷയിലും ബംഗ്ലാദേശിലും ജാഗ്രതാ നിർദ്ദേശം

ബംഗാളിലെ സാഗർ ദ്വീപിലും ബംഗ്ലാദേളിലെ ചിലയിടങ്ങളിലും മണ്ണിടിച്ചിൽ ഉണ്ടായി

ബുൾ ബുൾ ചുഴലിക്കാറ്റ് ഇന്ന് ശക്തി കുറഞ്ഞ് ബംഗ്ലാദേശ് കടന്നുപോകുമെന്നാണ് മുന്നറിയിപ്പ്

ഗവൺമെന്റ് ആവശ്യമായ എല്ല ാമുന്നൊരുക്കങ്ങളും നടത്തിയിട്ടുണ്ടെന്ന് ഒഡീഷാ ചീഫ് സെക്രട്ടറി അസിത്ത് ത്രിപാഠി അറിയിച്ചു ദേശീയ ദുരന്ത പ്രതികരണ സേന കര വ്യോല നാവിക സേനയും തീരസംക്ഷണ സേനയും രക്ഷാപ്രവർത്തനത്തിന് സജ്ജമാണ് ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇന്നലെ ന്യൂഡൽഹിയിൽ ദേശീയ സംരംഭക പുരസ്കാരങ്ങൾ സമ്മാനിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി സ്കിൽ ഇന്ത്യ ഡിജിറ്റൽ ഇന്ത്യ പദ്ധതികളിലൂടെ ഗവൺമെന്റ് യുവാക്കൾക്കായി നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചു സ്വയം സഹായ സംഘങ്ങൾ ജനങ്ങളുടെ സ്പ്യാമ്പത്തിക ശേഷി ഉയർത്തുക മാത്രമല്ല സാമൂഹ്യ തിന്മകള്ളിക്ക്ട്യുകയും ചെയ്യുന്നതായി കേന്ദ്രമന്ത്രി പറഞ്ഞു കൂടുതൽ പേള്ര് സ്റ്റംർംഭക മേഖലയിലേക്ക് തിരിയാൻ പ്രോത്സാഹിപ്പിക്കണമെന്നും ശ്രീ മഹേന്ദ്രനാഥ് പാണ്ഡേ പറഞ്ഞു

സമൂഹത്തിൽ സംസ്കൃതത്തിന് ഇന്നും വൃക്തമായ സ്ഥാനമുണ്ടെന്ന് സംസ്കൃത പ്രദർശനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വിദേശകാരൃ സഹമന്ത്രി വി

ഇന്ത്യയിലെ മിക്ക ഭാഷകളിലും സംസ്കൃത വാക്കുകൾ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പ്രദർശനത്തിൽ സംസ്കൃത ഭാഷയിലുള്ള കൈ എഴുത്ത് ലിപികൾ പുസ്തകങ്ങൾ എന്നിവ ഉൾപ്പെടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്

രാജ്യത്തെ മുതൽക്കൂട്ടാണ് യുവതലമുറയെന്ന് ത്രിപുര ഗവർണർ ്രമേഷ് ബയാസ് ചടങ്ങിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു രാജ്യത്തെ യുവാക്കൾ ലോകത്തെ വിവിധ രംഗങ്ങളിൽ മികച്ച സംഭാവനകളാണ് നൽകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു രാജ്യത്തിനോടും സമൂഹത്തിനുമോടുള്ള ഉത്തരവാദിത്വവും രാജ്യത്തിന്റെ സംസ്കാരവും യുവതലമുറ വിസ്മരിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു